ഇതേ വേഗത്തിൽ ഇന്ന് രാത്രിയോ നാളെ പുലർച്ചയോ ബുറെവി പാമ്പനും കന്യാകുമാരിക്കും ഇടയിൽ തെക്കൻ തമിഴ്നാട് തീരം കടക്കും നാളെ ഉച്ചയോടെ തിരുവനന്തപുരം വഴി ചുഴലിക്കാറ്റ് കടന്നുപോകാൻ ഇടയുണ്ടെന്നാണ് റിപ്പോർട്ട് ഇന്നു മുതൽ ശനിയാഴ്ച വരെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും ദേദ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഴയുടെ തീവ്രത അതിശക്തമാകുമെന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ദര ബുറെവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായും തമിഴ്നാട് മുഖ്യമന്ത്രി ഇ

കേരളത്തിലെ സ്ഥിതിയെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിച്ചെന്ന് പ്രധാനമന്ത്രി പിന്നീട് ട്വിറ്ററിൽ അറിയിച്ചു കേരളത്തെ സഹായിക്കാൻ സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പുനൽകിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദേദ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഭയാശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അസാധാരണമായ ചുഴലിക്കാറ്റ് രൂപീകരണം ആയതുകൊണ്ട് കൃത്യമായ സഞ്ചാരപഥത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത അടുത്ത മണിക്കൂറുകളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലവിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത ആവശ്യമാണ് ഏതു സാഹചര്യവും നേരിടാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചുഴലിക്കാറ്റ് കടന്നുപോകുന്നതുവരെ ശബരിമല തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടിവരും

ദേശീയ ദുരന്ത നിവാരണ സേനയുടെ എട്ട് ടീമുകൾ സംസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് വ്യോമസേനയും നാവികസേനയും സജ്ജമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

അതി തീവ്രമഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ ചെറിയ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടേണ്ടിവരും

അടിയന്തര സാഹചര്യം നേരിടാൻ കര നാവിക വ്യോമ സേനകളുടെ സഹായം തേടിയിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും അത്യാവശ്യ കാര്യങ്ങൾക്കൊഴികെ ആരും ഈ പ്രദേശങ്ങളിലേക്ക് പോകരുതെന്നും കലക്ടർ അറിയിച്ചു

ജില്ലയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും

ദേദ പത്തനംതിട്ട ജില്ലയിൽ ചുഴലിക്കാറ്റ് ബാധിക്കാൻ സാധ്യതയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു

ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ ബി

ദേദ ജനങ്ങൾ ആവശ്യമായ ജാഗ്രതയും മുന്നൊരുക്കവും കൈക്കൊള്ളണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു വിശദാംശങ്ങളുമായി ഹബീബ് റഹ്മാൻ ദേദ എമർജൻസി കിറ്റ് തയ്യാറാക്കി കൈയ്യിൽ കരുതണമെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കണമെന്നും കിംവദന്തികൾ പരത്തരുതെന്നും അതോറിറ്റി അറിയിച്ചു

കുട്ടികൾ വയോധികർ കിടപ്പു രോഗികൾ ഗർഭിണികൾ പാലൂട്ടുന്ന അമ്മമാർ ഭിന്നശേഷിക്കാർ എന്നിവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അതോറിറ്റി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി ദ്ദേ ചുഴലിക്കാറ്റിന്റെ ആഘാതം തടയുന്നതിന് ദുരന്ത നിവാരണ ഏകോപന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിന് തദ്ദേശ ഭരണ വകുപ്പ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു ദേദ സംസ്ഥാനത്ത് കോവിഡ് രോഗമുക്തരായവരുടെ എണ്ണം അഞ്ചരലക്ഷം കവിഞ്ഞു

ദേദ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് കവി പി

വിനോദ സഞ്ചാരികളുടെ ക്രമാതീതമായ വർദ്ധനയും കോവിഡ് ചട്ടങ്ങൾ പാലിക്കാതെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണവും രോഗവ്യാപനത്തിന് ആക്കം കൂട്ടുകയാണ്

വോട്ടർമാരെ നേരിൽക്കണ്ടും സാമൂഹിക മാധ്യമങ്ങൾ വഴിയും വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പതിവ് കവലയോഗങ്ങൾ കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട് കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും പ്രത്യേക ബാലറ്റ് സൌകര്യം ഏർപ്പെടുത്തി എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രത്യേകത സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് വഴി ഇതിനകം വോട്ട് രേഖപ്പെടുത്തി തുടങ്ങി ആദ്യഘട്ടത്തിൽ അടുത്ത ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ ജില്ലകളിൽ ഞായറാഴ്ച വൈകിട്ട് പരസ്യപ്രചാരണം അവസാനിക്കും ദ്ദേ കോവിഡ് ബാധിതർക്കും ക്വാറന്റീനിലുള്ളവർക്കും ഏർപ്പെടുത്തിയ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് തപാൽ മാർഗം അയക്കുന്നവരിൽ നിന്ന് തപാൽ ചാർജ്ജ് ഈടാക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു കാലതാമസം ഒഴിവാക്കാനായി സ്പെഷ്യൽ തപാൽ വോട്ട് സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നതിന് ക്രമീകരണമാണ് ഒരുക്കുന്നത് ദ്ദേ മലപ്പുറം ജില്ലയിലെ വനാതിർത്തി പ്രദേശങ്ങളിൽ മാവോവാദി ഭീഷണി നിലനിൽക്കുന്ന മേഖലകളിലെ ബൂത്തുകൾ തൃശൂർ റേഞ്ച് ഡി ഐ

ദേദ കോവിഡ് രോഗികൾക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കുമായി സ്പെഷൽ തപാൽ വോട്ട് സംവിധാനം പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ചു സ്പെഷൽ ബാലറ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ സംഘം രോഗികളുടെയും ക്വാറന്റീനിൽ കഴിയുന്നവരുടെയും അടുത്ത് നേരിട്ടെത്തിയാണ് സ്പെഷൽ തപാൽ കൈമാറുന്നത് രും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തില്ലങ്കേരി ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോർജുകുട്ടി ഇരുമ്പുകുഴി നിര്യാതനായി

കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ സെക്രട്ടറിയും ജോസഫ് വിഭാഗം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവുമാണ് സംസ്കാരം പിന്നീട് ദേദ മുൻ കെപിസിസി ജനറൽ സെക്രട്ടറിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സി ആർ ജയപ്രകാശ് ആലപ്പുഴയിൽ അന്തരിച്ചു

കായംകുളം നഗരസഭ ചെയർമാൻ ആലപ്പുഴ ഡി സി

അരൂർ കായംകുളം നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടിയിരുന്നു

വൈകീട്ട് മൂന്നരയോടെ ഉറുകുന്ന് ജംഗ്ഷനിൽ നിയന്ത്രണംവിട്ട പിക്കപ്പ് വാൻ പെൺകുട്ടികളുടെ മേൽ പാഞ്ഞുകയറുകയായിരുന്നു ദേദ ഐ എസ് എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ് സി ജംഷഡ്പൂർ എഫ് സി മത്സരം സമനിലയിൽ ഗോവയിൽ നടന്ന മത്സരത്തിൽ ഇരുടീമുകളും ഓരോ ഗോൾ നേടി

ദ്ദേ സമരം നടത്തുന്ന കർഷകരുമായി കേന്ദ്രം ഇന്ന് വീണ്ടും ചർച്ച നടത്തും

പുതിയ കാർഷിക പരിഷ്കരണ നിയമം കർഷകരുടെ താല്പര്യം കണക്കിലെടുത്താണ് കൊണ്ടുവന്നതെന്നും സമരം പിൻവലിക്കണമെന്നും കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ കർഷകരോട് അഭ്യർത്ഥിച്ചു